രണ്ടു ദിവസത്തിനകം കാലവർഷം കനക്കും

ക്ഷീര സംഘങ്ങളുടെയും ക്ഷീരോദ്പാദന സംരംഭങ്ങളുടെയും ഭാഗമായ കർഷകർക്കാണ് പ്രത്യേക പദ്ധതിവഴി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്നത്

നേരത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് കാലാവധി ദീർഘിപ്പിച്ചു നൽകും

മൂന്നു ലക്ഷം രൂപ വരെ കർഷകർക്ക് വായ്പ ലഭിക്കും

വായ്പ തിരിച്ചടയ്ക്കാൻ കർഷകർക്ക് ആഗസ്റ്റ് വരെ സമയം ലഭിക്കുമെന്നും കൃഷി മന്ത്രി നരേന്ദ്ര തോമർ പറഞ്ഞു

സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ നിർവചനം പരിഷ്കരിച്ച തീരുമാനം നിരവധി വ്യാവസായിക യൂണിറ്റുകൾക് സഹായകമാകും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രണ്ടാം എൻഡിഎ സർക്കാരിന്റെ രണ്ടാം വർഷത്തെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം

ഒഡീഷ സിക്കിം മിസോറം എന്നീ സംസ്ഥാനങ്ങളാണിവ

ഭക്ഷിപ്പസ്തുരക്ഷ പദ്ധതി പ്രകാരം ഭക്ഷ്യധാനൃങ്ങൾ രാജ്യത്തെ ീഏതു ന്യായ വില ഷോപ്പിൽ നിന്നും ഉപഭോക്താവിന്റ് വാങ്ങാൻ കഴിയും

സ്പിക് മാകേ സംഘടിപ്പിച്ച അനുഭവ് സീരീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ശ്രീ

സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കുവാൻ സംഗീതത്തിന് കഴിവുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു

ആർ

ജെൽ ക്രാഫ്റ്റ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് യൂണിറ്റ് നിർമ്മിച്ചത്

സി

സി നോൺ എ സി

ത്തിലധികം യാത്രക്കാർ ഇന്നലെ യാ്ത്ര് ചെയ്തു

ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും കർണാടകത്തിൽ നാലും അരുണാചൽ പ്രദേശിലും മിസോറമിലും ഓരോ സീറ്റിലുമാണ് തിരഞ്ഞെടുപ്പ്

ഇതിൽ എയർ ഇന്ത്യാ ജീവനക്കാരനും ആരോഗൃ പ്രവർത്തകനും ഉൾപ്പെടുന്നു

കോഴിക്കോട് ചികിത്സയിലിരുന്ന സ്ത്രീ മരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം പത്തായി

പുതുതായി പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ അഞ്ച് പ്രദേശങ്ങളെ ഹോട്സ്പോട്ടുകളാക്കി

രോഗ വ്യാപനും വർദ്ധിച്ചുവരുന്ന സാഹചര്യ ത്തിൽ കൂട്ടം കൂടുന്നത് തുടർന്നും അനുവദിക്കില്ല

എട്ടാം തീയതിക്ക് ശേഷം അനുവദിക്കേണ്ട ഇളവുകളുടെ കാര്യത്തിൽ അഭിപ്രായം കേന്ദ്രത്തെ അറിയിക്കും

എല്ലാ സീറ്റിലും യാത്രക്കാർക്ക് ഇരിക്കാം

സംസ്ഥാനം വിട്ടുള്ള് യാത്രക്ക് പാസ് നിർബന്ധമാണ്